ത മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് മറ്റന്നാൾ വീണ്ടും ചോദ്യം ചെയ്യും

എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ജയം വാർത്തകൾ വിശദമായി ഗ്രാമങ്ങളിൽ ഭൂമി കൃത്യമായി നിർണയിച്ച് ഉടമകൾക്ക് ആസ്തി കാർഡ് നൽകുന്ന സ്വാമിത്വ പദ്ധതിയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും

ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ലക്ഷത്തോളം ഭൂവുടമകൾക്ക് അവരുടെ മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്ന എസ്

എസ് ലിങ്കു വഴി പ്രോപ്പർട്ടി കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാൻ സാധിക്കും

വായ്പയെടുക്കാനും മറ്റ് സാമ്പത്തികാവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ആസ്തി കാർഡുകൾ ഭൂനികുതി നിർണയം തർക്കപരിഹാരം തുടങ്ങിയവയ്ക്കും സഹായകമാകും രുമ ഗ്രാമീണ ഇന്ത്യയിൽ വൻ മാറ്റങ്ങൾ കൊണ്ടു വരുന്ന ദിവസമാണ് ഇന്ന് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ സ്വാമിത്വ പദ്ധതി ഒരു നാഴികക്കല്ലാണെന്ന് തെളിയിക്കുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ഔദ്യോഗിക രേഖ ഗ്രാമീണർക്ക് ലഭിക്കുമെന്നും അത് അവരെ ശക്തരാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബാങ്ക് വായ്പ ഉൾപ്പെടെ നിരവധി സാമ്പത്തിക കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തേയും അതുമൂലമുണ്ടാകുന്ന മരണനിരക്കിനേയും സംബന്ധിച്ച് ഏറ്റവും നിർണായക ഘട്ടമാണ് ഒക്ടോബർ നവംബർ മാസങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഈ രണ്ടു മാസങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടത്താൻ കഴിഞ്ഞാൽ മരണങ്ങൾ വർധിക്കുന്നത് വലിയ തോതിൽ തടയാൻ സാധിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ശതമാനത്തിന് മുകളിൽ നിൽക്കുന്നത് കേസുകളുടെ എണ്ണം ഇനിയും ഉയരുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി വോയ്സ് രംഭ കേരളത്തേക്കാൾ ജന സാന്ദ്രത കുറഞ്ഞ കർണാടകയിലും തമിഴ്നാട്ടിലും രോഗികളുടെ എണ്ണം ആറു ലക്ഷത്തിലധികമായി

രോഗവ്യാപനം അതിന്റെ പരമാവധിയിൽ എത്താൻ എടുക്കുന്ന സമയം ദീർഘിപ്പിച്ചതും ആരോഗ്യ സംവിധാനം ശക്തമാക്കിയതുമാണ് കോവിഡ് കേസുകൾ ഇത്രയധികം കൂടിയിട്ടും മരണ നിരക്ക് കുറയാൻ കാരണം ഡോക്ടർമാർ നഴ്സുമാർ ലാബ് ടെക്നീഷ്യൻമാർ ഫാർമസിസ്റ്റുകൾ ക്ലീനിങ് സ്റ്റാഫ് തുടങ്ങി ആരോഗ്യ മേഖലയിലെ ഓരോ അംഗത്തിന്റേയും നിസ്വാർത്ഥ സേവനവും ആസൂത്രണ മികവുമാണ് നമ്മെ കാത്തു രക്ഷിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയന്ത്രണങ്ങളോട് സഹകരിച്ച് രോഗവ്യാപനം തടയാൻ ആവശ്യമായ നടപടികൾ ജനങ്ങൾ ഏറ്റെടുക്കണം തിരുവനന്തപുരം ജില്ലയിൽ കുറച്ചു ദിവസങ്ങളായി കോവിഡ് ബാധിക്കുന്നവരിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണെന്നും മാർക്കറ്റുകളിലും മാളുകളിലും കൂടുതലായി സ്ത്രീകളെ കാണുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇതിൽ പത്ത് ശതമാനം പേരിൽ ഗുരുതരമായ രീതിയിലാണ് ബുദ്ധിമുട്ടുകൾ തുടരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി രാജ്യത്ത് മഹാരാഷ്ട്രയെ പിന്തള്ളി കേരളം പ്രതിദിന കോവിഡ് രോഗ ബാധയിൽ മുന്നിലെത്തി കോവിഡ് റിപ്പോർട്ട് ചെയ്ത ശേഷം സംസ്ഥാനത്ത് ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

സംസ്ഥാനത്ത് സമ്പർക്ക രോഗികളുടെ എണ്ണവും പതിനായിരം കടന്നു

രോഗപ്പകർച്ച എല്ലാവരിലേക്കുമെത്തുമ്പോൾ ആരോഗ്യ സംവിധാനം തകിടം മറിയാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

കോവിഡ് പ്രോട്ടോകോൾ പാലനത്തിൽ ജനങ്ങൾ നന്നായി സഹകരിക്കണമെന്നും ഡോ സക്കീന ആവശ്യപ്പെട്ടു

രുര കോവിഡ് കേസുകൾ വർധിച്ച പ്രദേശങ്ങളിൽ നിയന്ത്രണത്തിന് കണ്ടെയിൻമെന്റ് സോൺ പ്രഖ്യാപനം വളരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞതായി കോഴിക്കോട് ജില്ലാ കലക്ടർ എസ്

രുമ കോവിഡ് കാലത്ത് കാൻസർ രോഗികൾ അമിതമായി ഭയപ്പെടേണ്ടതില്ലെന്ന് പ്രമുഖ കാൻസർ വിദഗ്ധൻ ഡോ

കീമോതെറാപ്പി പോലുള്ള ചികിത്സയെടുക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

മണ്ണന്തല ഗവൺമെന്റ് പ്രസ്സിലെ നൂതന മൾട്ടി കളർ വെബ്ബ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് മെഷീന്റെ പ്രവർത്തനോദ്ഘാടനം ഓൺലൈനായി നിർവ്വഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രെ ചെറുതോണി ടൌണിൽ പെരിയാറിനു കുറുകെ പുതിയ പാലത്തിന്റെ നിർമാണോദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും

രുമ ശബരിമലയിൽ തുലാമാസ പൂജയ്ക്ക് വിർച്വൽ ക്യൂ സംവിധാനം ഇന്ന് രാവിലെ പ്രവർത്തന ക്ഷമമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

പമ്പാ നദിയിൽ സ്നാനത്തിന് അനുമതിയില്ല

ചെമ്പൈ സംഗീതോത്സവവും ചടങ്ങ് മാത്രമാക്കി നടത്തും രംഭ മലപ്പുറം ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ ഇത്തവണ എഴുത്തിനിരുത്തൽ ചടങ്ങ് ഉണ്ടാകില്ലെന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ എം ടി വാസുദേവൻ നായർ അറിയിച്ചു നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ തുഞ്ചൻ വിദ്യാരംഭ കലോത്സവും വേണ്ടെന്നുവെച്ചതായി അദ്ദേഹം തിരൂരിൽ പറഞ്ഞു

എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ജയം അബൂദബിയിൽ നടന്ന ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിങ്സ് ഇലവൻ പഞ്ചാബിനെ രണ്ടു റൺസിനാണ് തോൽപ്പിച്ചത്

രുമ വിദേശ രാജ്യങ്ങളിൽ മരണപ്പെടുന്നവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ സംവിധാനമേർപ്പെടുത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ കേന്ദ്രവും ജില്ലാ മെഡിക്കൽ ഓഫീസും ചേർന്നാണ് സംവിധാനമൊരുക്കുന്നത് എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ കേന്ദ്രം കണ്ണൂരിൽ ആരംഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് നെടുമ്പാശ്ശേരിയുടെ സാങ്കേതികാനുമതിയോടെ മൃതദേഹങ്ങൾ കണ്ണൂരിലെത്തിക്കുന്നത് രുമ തൃശൂർ അന്തിക്കാട് ബിജെപി പ്രവർത്തകൻ നിധിനിന്റെ കൊലപാതകത്തെ കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിട്ടും പൊലീസ് അത് മറച്ചുവെക്കുകയായിരുന്നെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ

കൊലപാതക കേസിലെ പ്രതികളുടെ വീട്ടിൽ സ്ഥലം സി